ഐകൃസന്ദേശം പാർലമെന്റ് നിൽകുമെന്ന് കരുതുന്നതായി പ്രധാനമന്ത്രി ന്രേന്ദ്രമോദി

കോവിഡ് വാക്സിൻ അടുത്ത വർഷം ആദ്യം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രം

നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ലോക്സഭ രാവിലെ ഒരു മണിക്കൂറോളം പിരിഞ്ഞു കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി രാവിലെയും വൈകിട്ടുമായാണ് ലോക് സഭയും രാജ്യസഭയും ചേരുന്നത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ജ്യസാജ് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അജിത് ജോഗി മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടൻ ഉത്തർപ്രദേശ് മന്ത്രിമാരായ കമൽ റാണി ചേതൻ ചൌഹാൻ മുൻ ക്യേന്ദ്രമന്ത്രി രഘുവംശ പ്രസാദ് എന്നിവർക്കാണ് സഭ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ സംബന്ധിച്ച് നേർത്തെ ഡി എം കെ സി

എം എന്നിവരും കിഴക്കൻ ല്ഡാക്കിൽ ചൈനീസ് കടന്നുകയറ്റം സംബന്ധിച്ച് കോൺഗ്രസും ദില്ലി പോലീസ് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് എൻ പ്രേമച്ചന്ദ്രൻ എം പിയും അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി ഡി എം കെ എംപിമാർ രാവിലെ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനവും നടത്തി

കാർഷികോത്പാദന പ്രോത്സാഹന ബിൽ കർഷക ശാക്തീകരണ സംരക്ഷണ വില സുരക്ഷാ ബിൽ ഹോമിയോപ്പതി സെൻട്രൽ കൌൺസിൽ ഭേദഗതി ബിൽ അവശ്യ സാധന ഭേദഗതി ബിൽ ബാങ്കിംഗ് റെഗുലേഷൻ ഭേഗദതി ബിൽ മന്ത്രിമാരുടെ ശമ്പള അലവൻസ് ഭേദഗതി ബിൽ ദുരന്ത നിവാരണ ഭേഗദതി ബിൽ എന്നിവയാണ് പരിഗണനയ്ക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സഭാസമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സഭയ്ക്ക് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ് അവ്ർ നിൽക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലും പാർലമെന്റ് സമ്മേളനത്തിൽ പ്രിങ്കെടുക്കാനാനെത്തിയ അംഗങ്ങളെ ശ്രീ

ഈ സെഷനിൽ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകും കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം പ്റഞ്ഞു

പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചോദ്യോത്തരവേളയുടെ സമയം കുറച്ച് സർക്കാർ ജനാധിപതൃത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷനേതാവ് അദിർ രഞ്ജൻ ചൌധരി പറഞ്ഞു

കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ഹിന്ദി പക്ഷാഘോഷങ്ങൾക്കും തുടക്കമായി

ഹിന്ദിയുടെ വിക്സ്നത്തിന് സംഭാവന നൽകിയ എല്ലാ ഭാഷാ പണ്ഡിതന്മാരെയും പ്രിധാനമന്ത്രി നരേന്ദ്ര മോദി ട്വീറ്റിൽ അഭിനന്ദിച്ചു ഹിന്ദിയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ശാസ്ത്രീയത മൌലിക്ത് ് ലാളിത്യം എന്നിവയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി

വിദേശത്ത് കുടങ്ങിയവർക്ക് പ്രതീക്ഷയും സന്തോഷവും പകരാൻ ദൌതൃത്തിന് കഴിഞ്ഞു കൂടുതൽ പേരെ നാട്ടിലെത്തിക്കുന്നതിനായി ദൌതൃം തുടരുമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വൈവിധ്യമാർന്ന വിവരങ്ങളാണ് മൻ കി ബാത്തിന്റെ കരുത്തെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ജെ

പി നഡ്ഡ അറിയിച്ചു

എന്നാൽ വാക്സിൻ കേന്ദ്ര എപ്പോൾ തയ്യാറാകുമെന്ന് കൃത്യമായി പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൺഡേ സംവാദ് ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്

പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് മലബാർ കാൻസർ സെന്റർ എന്നിവിടങ്ങളിലെ വിപ്പിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു

കോവിഡ് ഇന്ത്യയിൽ വ്യാപിക്കുമ്പോൾ സംസ്ഥാനത്ത് മരണനിരക്ക് നിർത്താനായി

ഇതെല്ലാം ജനങ്ങളും ലോകവും അംഗീകരിക്കുമ്പോഴും അത് അത്തരക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പ്രതിദിന കോവിഡ് മുക്തരുടെ എണ്ണം തുടർച്ചയായി വർധിക്കുകയാണ്

ഇതുവരെ ്മൂന്ന് കോടിയോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി പദ്ധതിയുടെ വിശദ മാർഗ്ഗരേഖ സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയതായും ആഭ്യന്തര കാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അവനീഷ് അവസ്തി അറിയിച്ചു